ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിൽ ക്രമക്കേടുണ്ടായെന്ന ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷേധിച്ചു കെഎസ്ആർടിസിയിൽ നിന്ന് പിരിച്ചു വിട്ട എംപാനൽ കണ്ട ക്ടർമാർ അനിശ്ചിതകാല സമരം തുടങ്ങി മനുഷ്യക്കടത്ത് കേസിൽ അറസ്റ്റിലായ രവി സനൂപ് രാജയെ ഇന്ന് കൊച്ചിയിൽ ചോദ്യം ചെയ്യും

മൂന്ന് ദിവസത്തെ പ്രവാസി ഭാരതീയ ദിവസ് പരിപാടി ഇന്നലെ ആരംഭിച്ചിരുന്നു മൌറീ ഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് ജുഗ്നോത്താണ് ഉദ്ഘാടന ചടങ്ങിലെ മുഖ്യാതിഥി നവഭാരത നിർമ്മാണത്തിൽ പ്രവാസികളുടെ പങ്ക് എന്ന ആശയത്തിൽ ഊന്നിയാണ് ഇത്തവണത്തെ പരിപാടികൾ നാളെ സമാപന ചടങ്ങിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പങ്കെ ടുക്കും പ്രവാസി ഭാരതീയ പുരസ്കാരങ്ങൾ അദ്ദേഹം സമ്മാനിക്കും

ഇന്നലെ യുവ പ്രവാസി ഭാരതീയ ദിവസ് കേന്ദ്രമന്ത്രി സുഷമ സ്വരാജ് ഉദ്ഘാടനം ചെയ്തിരുന്നു ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിൽ ക്രമക്കേടുണ്ടായെന്ന ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിച് നിഷേധിച്ചു വോട്ടിംഗ് യന്ത്രങ്ങൾ കൃത്രിമം നടത്താൻ കഴിയാത്തവയാണെന്നും ആരോ പണങ്ങൾ അടി സ്ഥാന രഹി ത മാ ണെന്നും കമ്മീഷൻ ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി

ആരോപണം അടിസ്ഥാന രഹിതമാണെന്ന് കേന്ദ്ര മന്ത്രി അരുൺ ജെയ്റ്റ്ലിയും ന്യൂഡൽഹിയിൽ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആയിരക്കണക്കിന് സൈബർ വിദഗ്ധരും ജോലി ചെയ്യുന്ന വോട്ടിംഗ് യന്ത്ര നിർമ്മാണ മേഖലയിൽ ഇത്തരം ഒരു കൃത്രിമം അസാധ്യമാ ണെന്ന് ജെയ്റ്റ്ലി വ്യക്തമാക്കി കെഎസ്ആർടിസിയിൽ നിന്നും പിരിച്ചു വിട്ട എം പാനൽ കണ്ട ക്ടർമാർ സെക്രട്ടറിയേറ്റിനു മുന്നിൽ അനിശ്ചിതകാല സമരം തുട ങ്ങി ഇന്നലെ ശയന പ്രദക്ഷിണത്തോടെയാണ് സമരം ആരംഭിച്ചത് ജോലിയിൽ തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം വെള്ളി യാഴ്ച്ച നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നതോടെ സമരവേദി അങ്ങോട്ട് മാറ്റുമെന്ന് എംപാനൽ കൂട്ടായ്മ അറിയിച്ചു താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടതിനെതിരായ ഹർജി ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും മുനമ്പം മനുഷൃക്കടത്തു കേസിൽ കസ്റ്റഡിയിലായ തമിഴ് വംശജൻ രവി സനൂപ് രാജയെ കൊച്ചിയിലെത്തിച്ചു ഡൽഹി അംബേദ്കർ നഗറിൽ താമസക്കാരനായ ഇയാൾ മനുഷ്യക്കടത്തു സംഘത്തിന്റെ ഏജന്റുമാരിൽ ഒരാളാണെന്നാണ് സൂചന നേരത്തെ പിടികൂടിയ പ്രഭു ദണ്ഡപാണിയുടെ സുഹൃത്താണ് ഇയാൾ

അതിനുശേഷമേ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വിവരങ്ങൾ ലഭിക്കൂ എന്ന് പോലീസ് അറിയിച്ചു സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം രാവിലെ തിരുവ നന്തപുരം എം

എൽഡിഎഫ് മേഖലാ ജാഥകളുടെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും മുന്നൊരുക്ക ങ്ങൾ യോഗം ചർച്ച ചെയ്യും സ്കൂൾ വിദ്യാർത്ഥികളെ ജൈവ കൃഷിയിലേക്കും കാർഷിക വൃത്തിയിലേക്കും ആകർഷിക്കുന്നതിന് പ്രൊഫസർ കെ

തോമസ് വിദ്യാധനം ട്രസ്റ്റിന്റെ കർഷക മിത്രം പദ്ധതി ഇന്ന് ഗവർണർ ജസ്റ്റിസ് പി സദാശിവം കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യും പദ്ധതിയുടെ ഭാഗ മായി ഒരു ലക്ഷത്തോളം തൈകൾ വിതരണം ചെയ്യും നവകേരള നിർമ്മിതിയും ഭൂവിനിയോഗ ആസൂത്രണവും എന്ന വിഷയത്തിൽ സംസ്ഥാന ഭൂവിനിയോഗം ബോർഡ് ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് ഏകദിന സെമിനാർ സംഘടിപ്പിക്കും സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനത്തെ ഭൂവി ഭവ വിവര സംവിധാനത്തിന്റെ പൂർത്തീകരണം ചടങ്ങിൽ സ്പീക്കർ പ്രഖ്യാപിക്കും ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്ന് മാറി ഒരു ചർച്ചയ്ക്കും തയാ റല്ലെന്ന് പന്തളം കൊട്ടാരം നിർവാഹക സംഘം പ്രസിഡന്റ് പി

ഗവൺമെന്റിന്റെയും ദേവസ്വം ബോർഡി ന്റെയും കടുംപിടുത്തം മൂലം ഇക്കുറി ശബരിമലയിൽ ഭക്തർക്ക് സൂഖദർശനം ലഭൃമായില്ലെന്നും ഇരുമുടിക്കെട്ടുപോലും പരിശോധി ക്കുന്ന നടപടി ശബരിമലയുടെ ചരിത്രത്തിൽ ആദ്യമാണെന്നും ശശി കുമാര വർമ്മ പറഞ്ഞു

ശനിയാഴ്ചയാണ് ര്ണ്ടാം ഏകദിനം

ദേശീയ ജൂനിയർ വനിതാ ഹോക്കി ചാമ്പ്യൻഷിപ്പ് നാളെ കൊല്ലത്ത് തുടങ്ങും

ആശ്രാമം ഹോക്കി സ്റ്റേഡിയത്തിലാണ് മത്സരം ഗവർണർ ജസ്റ്റിസ് പി സദാശിവം ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും

ഇടുക്കി ജില്ലാതലു പട്ടയമേള രാവിലെ കുട്ടിക്കാനം മരിയൻ കോളജ് ഓഡിറ്റോറിയത്തിൽ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും ആറായിരത്തോളം പട്ടയങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്യും വില്ലേജ് ഓഫീസുകളെ ജനസൌഹൃദ കേന്ദ്രങ്ങളാക്കുന്ന തര ത്തിൽ ഉദ്യോഗസ്ഥ സമീപനം മാറണമെന്ന് മന്ത്രി ഇ

എറണാകുളം ജില്ലയിൽ വെള്ളൂർകുന്നം സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കാല പ്പഴക്കം ചെന്ന മുഴുവൻ വില്ലേജ് ഓഫീസുകളും ഘട്ടങ്ങളായി നവീ കരിക്കും

കണ്ണൂരിൽ ഖാദി ബോർഡും പയ്യന്നൂർ ഖാദി കേന്ദ്രവും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഗാന്ധി സ്മൃതി ഖാദി മേള മന്ത്രി രാമചന്ദ്രൻ കട ന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു

കട്ടപ്പനയിലെ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ രാവിലെ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും

സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾ ഉപയോഗിച്ചാണ് ഹോസ്റ്റൽ കെട്ടിടം നിർമ്മിച്ചത് കാർഷികോൽപ്പന്നങ്ങൾക്ക് മികച്ച വില ലഭ്യമാകാൻ ഫാം പ്രൊഡ്യൂസർ കമ്പനി ആരംഭിക്കുന്ന കാര്യം ഗവൺമെന്റ് ചർച്ച ചെയ്യുമെന്ന് മന്ത്രി കെ

മണ്ണിന്റെ ഗുണ മേന്മ ഉറപ്പുവരുത്താൻ സോയിൽ കാർഡ് ഏർപ്പെടുത്തുന്ന കാര്യം ആലോചിക്കുമെന്നും മന്ത്രി പാലക്കാട് ചിറ്റൂരിൽ പറഞ്ഞു ജലവി ഭവ പരിപാലന ശിൽപശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പാലക്കാട്ട് ഭരണഭാഷ അവബോധ പരിപാടിയും മന്ത്രി ഉദ്ഘാ ടനം ചെയ്തു പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിനാണ് ഗവൺമെൻ് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നതെന്ന് മന്ത്രി കെ രാജു അറിയിച്ചു അടൂർ തെങ്ങമം ഗവൺമെന്റ് ഹയർ സെക്കന്ററി സ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

വിദ്യാഭ്യാസ മേഖലയിലെ സൌകര്യങ്ങൾ നല്ല നിലയിൽ പ്രയോ ജനപ്പെടുത്താൻ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രമിക്കണമെന്ന് മന്ത്രി ടി

രാമകൃഷ്ണൻ ആവശ്യപ്പെട്ടു കോഴിക്കോട് പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കന്റി സ്കൂളിൽ വടകര സിവിൽ സർവ്വീസ് അക്കാദമിയുടെ ഫൌണ്ടേഷൻ കോഴ്സ് ഉദ്ഘാടനം ചെയ്യുകയായി രുന്നു മന്ത്രി കാർഷിക രംഗത്തെ സ്ത്രീ പങ്കാളിത്തവും ശാക്തീകരണവും വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി വി

സുനിൽകുമാർ അറിയിച്ചു കുടും ബശ്രീ മാസ്റ്റർ ട്രെയിനികൾക്കായി കേരളാ കാർഷിക സർവകലാ ശാല ആരംഭിച്ച തീവ്ര പരിശീലന പരിപാടി വെള്ളാനിക്കരയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

പഞ്ചായത്തുകളിലെ തരിശ് നിലങ്ങൾ കൂടുംബശ്രീയെ ഏൽപ്പിച്ച് കാർഷികോത്പാദനം വർദ്ധിപ്പിക്കുന്ന പദ്ധതിക്ക് ഗവൺമെന്റ് അംഗീകാരം നൽകിയിട്ടു ണ്ടെന്ന് മന്ത്രി അറിയിച്ചു രാജ്യം സ്വാതന്ത്ര്യം നേടി ഏറെക്കാലമായിട്ടും സ്ത്രീകളുടെ പദവി ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ സമത്വത്തിനായി സ്ത്രീകൾ സമൂഹത്തിൽ ഇറങ്ങി പോരാടണമെന്ന് മന്ത്രി എം

മണി നിർദേശിച്ചു പുരുഷാധിപത്യ സമൂഹത്തിൽ സ്ത്രീകൾ ഭരണ ഘടനാപരമായ അവകാശങ്ങളെക്കുറിച്ച് ബോധവതികളാകണമെന്ന് മന്ത്രി കാസർകോട്ട് പറഞ്ഞു കൂടുംബശ്രീ ജെന്റർ പദ്ധതിയുടെ ഭാഗമായ നാലാംഘട്ട സ്വയം പഠന പ്രക്രിയ ഉദ്ഘാടനം ചെയ്യുക യായിരുന്നു മന്ത്രി ജനങ്ങളിൽ ദുരന്ത നിവാരണ അവബോധം ഉണ്ടാക്കാനും ദുരന്ത സാധ്യതകൾ വിലയിരുത്താനും ദേശീയ ദുരന്ത നിവാരണ സേനാ സംഘം മലപ്പൂറത്തെത്തി

ഇന്ന് തിരൂർ പൊന്നാനി താലൂക്കുകളിലാണ് സംഘത്തിന്റെ പര്യടനം പാലക്കാട് എടിഎം കൌണ്ടർ കുത്തിത്തുറന്ന് പണം മോഷ്ടിക്കാൻ ശ്രമിച്ച കേസിൽ രണ്ട് തമിഴ്നാട് സ്വദേശികളെ പൊലീസ് അറസ്റ്റ് ചെയ്തു സേലം ആത്തൂർ സ്വദേശി മാധവനും പ്രായപൂർത്തിയാ കാത്ത ഒരാളുമാണ് അറസ്റ്റിലായത് ശേഖരീപുരത്തെ സിൻഡികേറ്റ് ബാങ്കിന്റെ എടിഎം കൌണ്ടറിലാണ് ശനിയാഴ്ച്ച രാത്രി മോഷണശ്രമ മുണ്ടായത് മാഹി ബൈപ്പാസ് നിർമ്മാണത്തിലെ സ്ഥലമേറ്റടുക്കലുമായി ബന്ധപ്പെട്ട് അഴിയൂർ പഞ്ചായത്തിലെ ജനങ്ങളുടെ ആശങ്കയകറ്റാൻ ഒരാഴ്ച്ചക്കകം നടപടിയെടുക്കുമെന്ന് നാഷണൽ ഹൈവേ പ്രൊജക്റ്റ് ഡയറക്ടർ അറിയിച്ചു പ്രശ്നത്തിൽ അഴിയൂർ ഗ്രാമപഞ്ചായത്ത് അധി കൃതർ ജില്ലാ കലക്ടർ സാമ്പശിപ റാവുവിന് നിവേദനം നൽകിയി രുന്നു രാജധാനി എക്സ്പ്രസിന് കേന്ദ്ര റെയിൽവെ മന്ത്രാലയം കാസർകോട്ട് സ്റ്റോപ്പ് അനുവദിച്ചത് ജനങ്ങളുടെ ദീർഘകാല ആവശ്യം കണക്കിലെടുത്താണെന്ന് ബിജെപി കാസർകോട് ജില്ലാ പ്രസിഡന്റ് കെ

രാജധാനിക്ക് സ്റ്റോപ്പ് അനുവ ദിച്ച കേന്ദ്ര ഗവൺമെന്റ് തീരുമാനം ജില്ലയ്ക്ക് ലഭിച്ച അംഗീകാരമാ ണെന്നും അദ്ദേഹം പറഞ്ഞു കുറ്റ്യാടി ജലസേചന പദ്ധതിയിലെ ജലവിതരണം ഫെബ്രുവരി നാലിനെ ആരംഭിക്കൂവെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനിയർ അറിയി ച്ചു കനാൽ കടന്നുപോകുന്ന ഭാഗത്തെ നെൽകൃഷി കൊയ്യാത്ത സാഹചര്യവും ബന്ധപ്പെട്ട തൊഴിലുറപ്പ് പദ്ധതികളിലെ ജോലികൾ പൂർത്തീകരിക്കുന്നതിലെ താമസവും പരിഗണിച്ചാണ് നടപടി